സംസ്ഥാനത്തെ കോവിഡ് സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമല്ലെന്ന് ആരോഗ്യിമ്യന്തി കെ കെ ശൈലജ

കോവിഡ് വാക്സിൻ നൽകു്മ്പ്പോൾ രണ്ടാം ഡോസിന് അർഹരായവർക്ക് മുൻഗണിനി നൽകണമെന്ന് സംസ്ഥാനങ്ങളോട് കേന്ദ്രൻർക്കാർ

ഗൌരിയമ്മയ്ക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ വിട സംസ്കാരച്ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികളോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടന്നു

അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധൃത വ്യാഴാഴ്ച മുതൽ കേരള തീരത്ത് നിന്നും കടലിൽ പോകുന്നതിന് പൂർണ്ണ നിരോധനം

മലപ്പുറം എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം ജിലകളിലാണ് ഇന്ന് ഏറവും കുടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്

കെ ശൈലജ സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണാതീതമല്ലെന്ന് ആരോഗ്യമന്ത്രി കെ

കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന ഓക്സിജൻ സംസ്ഥാനത്തിന് തന്നെ ഉപയോഗിക്കാനാകണമെന്നും ഓക്സിജൻ ക്ഷാമം ഉണ്ടാകാതിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേന്ദ്രവിഹിതം കൂടി ലഭിച്ചാൽ സംസ്ഥാനത്ത് വലിയ തോതിൽ ഓക്സിജൻ ക്ഷാമം ഉണ്ടാവില്ലെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി

ആർ ഗൌരിയമ്മയ്ക്ക് കേരളത്തിന്റെ വിട

തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചയോടെയായിരുന്നു അന്ത്യം

വി ഓഡിറ്റോറിയത്തിലും പൊതുദർശനത്തിന് വച്ച ്മൃതദേഹത്തിൽ ഗവർണ്റും മുഖ്യമന്ത്രിയുമുൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു കോവിഡ് പ്രോട്ടോകോളിൽ ഇളവ് വരുത്തിക്കൊണ്ട് കർശന നിയന്ത്രണങ്ങളോടെയായിരുന്നുപൊതുദർശനം സംസ്കാരച്ചടങ്ങുകൾ വൈകുന്നേരം അഞ്ച് മണിയോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു

കൂടിയൊഴിപ്പിക്കൽ നിരോധന നിയമവും ഭൂപരിഷ്കരണ നിയമവുമടക്കം ഒട്ടേറെ സുപ്രധാനമായ നട്ടുപടികൾക്കാണ് ഗൌരിയമ്മ തുടക്കമിട്ടത്

സ്കൂൾ വിദ്യാഭ്യാസത്തിനുശേഷം എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ബി

ബിരുദവും തൂടർന്ന് എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമബിരുദവുള് സ്വന്തമാക്കിയ ഗൌരിയമ്മ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ത്ന്നെ കമ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ സജീവമായിരുന്നു തന്റെ സഹപ്രവർത്തകനായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ടി

വിതോമസ് സി

ഐയിലും ഗൌരിയമ്മ സി

ഈ ചികിത്സ കേന്ദ്രം സജ്ജമായാൽ രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിടക്കകളുള്ള ചികിത്സാ കേന്ദ്രമായി ഇത് മാറുമെന്നും ജില്ലാ കളക്ടർ എസ്

ഉസ്മീനാരി സ്കൂളിലും പാലാ എം

എച്ച്

എസിലും രാവിലെ പത്തു മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ടു വരെയാണ് കോവാക്സിൻ ്നിൽകുന്നത്

വോയിസ് മാടമ്പ് കുഞ്ഞുകുട്ടൻ അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ മാടമ്പ് കുഞ്ഞുകുട്ടന്റെ സംസ്കാരച്ചടങ്ങുകൾ തൃശൂർ കിരാലൂരിലെ വീട്ടിൽ ഓദ്യോഗിക ബഹുമതികളോടെ നടന്നു

തെക്കു കിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദം വ്യാഴാഴ്ചയോടെ ശക്തിപ്രാപിക്കാനും കടൽ പ്രക്ഷുബ്പമാകാനും സാധ്യതയുള്ളതിനാൽ വ്യാഴാഴ്ച മുതൽ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നത് പൂർണ്ണമായും നിരോധിച്ചു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഈ നിരോധനം തുടരുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ന്യൂനമർദ്ദം ഞായറാഴ്ചയോടെ ശക്തിപ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി